കാണികൾക്ക് പ്രവേശനമില്ല

ആദ്യ ദിവസം ഏഴ് പത്രികയാണ് നൽകിയത് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ ഡോ കെ ടി ജലീൽ ജെ മേഴ്സിക്കുട്ടിയമ്മ രാമചന്ദ്രൻ കടന്നപ്പള്ളി മുൻ മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാർ അനൂബ് ജേക്കബ് നീലലോഹിതദാസൻ നാടാർ തുടങ്ങിയവർ പത്രിക നൽകി വി ഡി സതീശൻ അനിൽ അക്കര എം ബി രാജേഷ് വീണാ ജോർജ്ജ് വി കെ പ്രശാന്ത് പി സി ജോർജ്ജ് മാണി സി കാപ്പൻ തുടങ്ങിയവരും പത്രിക നൽകിയവരിൽ ഉൾപ്പെടുന്നു

കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ ഒരു പത്രിക മാത്രമാണ് ലഭിച്ചത് ദേദ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ക്കു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര മന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് സ്മൃതി ഇറാനി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ വരും ദിവസങ്ങളിൽ കേരളത്തിലെത്തും

മറ്റ് പ്രമുഖ ദേശീയ നേതാക്കളും മുഖ്യമന്ത്രിമാരും പ്രചാരണത്തിന് എത്തുന്നുണ്ട് ത്രിപുര മുഖ്യമന്ത്രി ബിപ്സവ് കുമാർ ദേവ് തിരുവനന്തപുരം കാട്ടാക്കട വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഏതാനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളും ബിപ്സവ് കുമാർ ദേവ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ദേദ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് വൈകീട്ടോടെ പരിഹാരമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഏറ്റുമാനൂർ സീറ്റ് കാലാകാലമായി കേരളാ കോൺഗ്രസിന് നൽകി വരുന്നതാണെന്നും മറ്റ് സീറ്റൊന്നും ലതികാ സുഭാഷ് ചോദിച്ചില്ലെന്നും ചെന്നിത്തല അറിയിച്ചു കൽപ്പറ്റ വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥികളെയും ഇന്ന് തീരുമാനിക്കും ദേദ തിരൂരങ്ങാടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ സിപിഐ മാറ്റി നിശ്ചയിച്ചു നേരത്തെ പ്രഖ്യാപിച്ച അജിത് കോളാടിക്കു പകരം നിയാസ് പുളിക്കലകത്ത് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അറിയിച്ചു ദേദ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ സന്നദ്ധത അറിയിച്ചു നേരത്തെ മത്സരിക്കാനില്ലെന്ന നിലപാട് സ്വീകരിച്ച ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് മത്സരിക്കാൻ തീരുമാനിച്ചത് ദ്ദേ പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ച ലതികാ സുഭാഷ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ സ്വതന്ത്രയായി മത്സരിക്കുമെന്ന് അറിയിച്ചു ഇപ്പോഴും കോൺഗ്രസുകാരിയാണെന്നും മറ്റ് പാർട്ടികളിലേക്ക് പോകില്ലെന്നും ഏറ്റുമാനൂരിൽ നടത്തിയ കൺവെൻഷനിൽ അവർ വ്യക്തമാക്കി ലതികാ സുഭാഷിന്റെ മത്സര തീരുമാനം വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി പറഞ്ഞു ഒരാൾ മത്സരിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും തടയാനാവില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കോൺഗ്രസ് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും കെ പി സി സി ഐ സി സി അംഗത്വവും ലതികാ സുഭാഷ് രാജിവെച്ചിരുന്നു

മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ ഏറനാട് നിലമ്പൂർ വണ്ടൂർ കോങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിലായിരിക്കും പുതിയ സമയക്രമം തപാൽ ബാലറ്റ് അനുവദിച്ച കോവിഡ് ബാധിതർക്ക് രോഗം മാറി നെഗറ്റീവായാലും ബൂത്തിലെത്തി വോട്ട് ചെയ്യാനാവില്ലെന്ന് ടിക്കാറാം മീണ അറിയിച്ചു തെരഞ്ഞെടുപ്പിൽ നേരിട്ട് എത്തി വോട്ട് ചെയ്യാൻ കഴിയാത്തവർക്ക് തപാൽ വോട്ടിന് അവസരം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

പോസ്റ്ററുകൾ ചുമരെഴുത്തുകൾ കൊടി തോരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു

പ്രചാരണ പരിപാടികളിൽ കോവിഡ് മാനദണ്ഡം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദേശിച്ചു ക്ഷേത്രങ്ങൾ പള്ളികൾ മറ്റ് ആരാധനാലയങ്ങൾ എന്നിവിടങ്ങിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പാടില്ലെന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ ടി വി സുഭാഷ് രാഷ്ട്രീയകക്ഷികൾക്കും സ്ഥാനാർത്ഥികൾക്കും നിർദേശം നൽകി ദേദ കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷണത്തിന്റെ ഭാഗമായി നിയോഗിച്ച സ്ക്വാഡ് നാദാപുരത്തു നിന്ന് രേഖകളില്ലാത്ത ഒന്നേകാൽ ലക്ഷത്തോളം രൂപ പിടികൂടി

ദേദ ഇടുക്കി സിവിൽ സ്റ്റേഷനിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം സിഗ്നേച്ചർ വാൾ സ്ഥാപിച്ചു ജില്ലാ കലക്ടർ എച്ച് ദിനേശനും ജില്ലാ പൊലീസ് മേധാവി ആർ കറുപ്പ സ്വാമിയും ചേർന്ന് വാൾ ഉദ്ഘാടനം ചെയ്തു ദേദ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് രംഗത്തിന് വീറും വാശിയും ഏറി

ദേദ കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന സുപ്രധാന നടപടികളുടെ അടിസ്ഥാനത്തിൽ ലോകം ഇന്ത്യയുടെ നേതൃസ്ഥാനം അംഗീകരിച്ചെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ അറിയിച്ചു

കോവിഡ് വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ ഇന്നു മുതൽ ശേഷിക്കുന്ന ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് കാണികളെ ഒഴിവാക്കി അടച്ചിട്ട സ്റ്റേഡിയത്തിലായിരിക്കും മത്സരങ്ങൾ ദേദ ഐ ലീഗ് ഫുട്ബോൾ പ്ലേ ഓഫിൽ ഗോകുലം എഫ്

സീസണിലെ രണ്ടാം സമനിലയാണിത്

ദേദ ചടങ്ങുകളും ആചാരങ്ങളും മുടക്കാതെ തന്നെ ഇത്തവണ തൃശൂർ പൂരം നടത്താൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു

എസ് എൽ

ഇ മെയിൻ പരീക്ഷ നടക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ മാറ്റം

എസ് എൽ

ദ്ദേ ഷൊർണ്ണൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് മെമു എക്സ്പ്രസ് സർവ്വീസ് ആരംഭിച്ചു